കെ ശൈലജ

എസ് ആർ ടി

ടി സി ബസുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദേശം നൽകി

വാർത്തകൾ വിശദമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് എംബസികൾ മുഖേന സൌകര്യം ഒരുക്കണമെന്ന് നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു പ്രവാസികൾ ഉള്ള രാജ്യങ്ങളിൽ ടെസ്റ്റ് കിറ്റുകളുടെ ലഭ്യത കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പ് വരുത്തണം സ്വന്തം നിലയ്ക്ക് ടെസ്റ്റ് നടത്തുവാൻ സാഹചര്യമില്ലാത്ത പ്രവാസികളെ സൌജന്യമായി ടെസ്റ്റ് ചെയ്യുവാൻ എംബസികളെ ചുമതലപ്പെടുത്താൻ നിർദേശിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു കോവിഡ് പോസിറ്റീവായവരും രോഗമില്ലാത്തവരും ഒരുമിച്ചു യാത്ര ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തുന്നവർക്ക് പ്രത്യേക ഫ്ലൈറ്റ് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു രുമ സംസ്ഥാനത്ത് ലോക് ഡൌൺ ഇളവുകൾ വരുത്തിയ സാഹചര്യത്തിൽ ജാഗ്രത കുറഞ്ഞാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് മന്ത്രി കെ

എങ്കിലും ഒരു രാജ്യത്തിനും ഏറെക്കാലം ദൈനംദിന പ്രവർത്തനങ്ങളുടെ എല്ലാ വാതിലുകളും അടച്ചിടാൻ കഴിയില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇത് മുന്നിൽ കണ്ടാണ് ലോക് ഡൌൺ ഇളവുകൾ വരുത്തിയതെന്നും കൊറോണ വൈറസ് അവസാനിച്ചു എന്നാരും കരുതരുതെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോഴും പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു രുമ കണ്ണൂർ ജില്ലയിലെ ഒരു കെ

എസ്

സി ബസ്സുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ മന്ത്രി എ

ശശീന്ദ്രൻ നിർദ്ദേശം നൽകി

സി ബസ്സുകളിൽ ഡ്രൈവറുടെ ക്യാബിൻ പ്രത്യേക സംവിധാനം ഉപയോഗിച്ചു വേർതിരിക്കും ആദ്യഘട്ടത്തിൽ കണ്ണൂർ കരിപ്പൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും സർവ്വീസ് നടത്തുന്ന ബസ്സുകളിലായിരിക്കും ഇൌ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു

കോഴിക്കോട്ട് എട്ടും എറണാകുളം തൃശൂർ ജില്ലകളിൽ ഏഴു പേർക്ക് വീതവും പാലക്കാട് കാസർകോട് ജില്ലകളിൽ ആറു പേർക്ക് വീതവും രോഗം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ നാലു പേർക്ക് വീതവും കോട്ടയം മലപ്പുറം ജില്ലകളിൽ മൂന്നു പേർക്ക് വീതവുമാണ് കോവിഡ് കണ്ടെത്തിയത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ രണ്ടു പേർക്ക് വീതവും കൊല്ലം വയനാട് ജില്ലകളിൽ ഒരാൾക്ക് വീതവുമാണ് രോഗബാധ

തൃശൂർ ജില്ലയിലെ രണ്ടു പേർക്കും മലപ്പുറം ജില്ലയിലെ ഒരാൾക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് തൃശൂർ ജില്ലയിലെ രണ്ടും തിരുവനന്തപുരം ജില്ലയിലെ ഒന്നും ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു

പുതുതായി ആറു പ്രദേശങ്ങൾ ഹോട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി രുമ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച എട്ടു പേരിൽ അഞ്ച് പേർ വിദേശത്ത് നിന്നും മൂന്ന് പേർ ചെന്നൈയിൽ നിന്നും വന്നവരാണ്

രുമ ഇന്നലെ ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച എറണാകുളം ജില്ലയിൽ നിന്ന് ആകാശവാണി ലേഖകൻ എൻ

ഒരാൾ ചെന്നൈയിൽ നിന്നെത്തിയ ചെത്തല്ലൂർ സ്വദേശിയും രണ്ടു പേർ വിദേശത്തു നിന്നെത്തിയ ചാലിശ്ശേരി കുമരംപുത്തൂർ സ്വദേശികളുമാണ്

രേര കരിപ്പൂർ ടെർമിനൽ മാനേജർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ വിമാനത്താവളത്തിലെ ജീവനക്കാരുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ നടപടി തുടങ്ങി യാത്രക്കാർക്കുപുറമെ ജീവനക്കാരുമായും അടുത്തിടപഴകിയ ആൾക്കാണ് കോവിഡ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിനാൽ ആശങ്കയുയരുന്നുണ്ട്

രുഭ ഡൽഹിയിൽ കൊറോണ ബാധിതരുടെ എണ്ണം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ കോവിഡ് നിയന്ത്രണം അവലോകനം ചെയ്യാൻ ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ ഹർഷ് വർധൻ എന്നിവരുമായി ഇന്നലെ ഉന്നതതല ചർച്ച നടത്തിയ ആഭ്യന്തര മന്ത്രി രോഗം നേരിടുന്നതിന് ഒട്ടേറെ നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു

കാഴ്ച ശ്രവണ ബുദ്ധി പരിമിതി പഠനവൈകല്യം സെറിബ്രൽപൾസി ഓട്ടിസം എന്നീ വിഭാഗത്തിൽപെട്ട കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ പഠന വിഭവം തയാറാക്കുന്നതാണ് പദ്ധതി ടെലിഗ്രാം യൂട്യൂബ് ഉൾപ്പെടെ സമൂഹമാധ്യമങ്ങളിലൂടെ ക്കാസുകൾ ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തിരുവന്തപുരത്ത് അറിയിച്ചു രേര പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫസ്റ്റ്ബെൽ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ഇന്നു തുടർ സംപ്രേഷണം ആരംഭിക്കും

രുമ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു കൊല്ലം കല്ലുവാതുക്കൽ സ്വദേശികളായ അസീം പ്രിൻസ് മനീഷ് എന്നിവരാണ് മരിച്ചത്

അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി പൊലീസ് അറിയിച്ചു

കുമ്പള ബദരിയ നഗറിലെ ഹുസൈഫ് തളങ്കര സ്വദേശി മിദ്ലാജ് എന്നിവരാണ് മരിച്ചത് രുര സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു വയനാട് പാലക്കാട്പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഒഴികെ ഒൻപത് ജില്ലകളിൽ ശക്തമായ മഴസാധ്യത കണക്കിലെടുത്ത് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കടൽക്ഷോഭത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ചവരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടിക്കാൻ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്